പ്രവർത്തനങ്ങൾ ശക്തമാക്കി രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്താൻ കോർ കമ്മിറ്റി തീരുമാനം

സ്ഥിരീകരിച്ചു

തീരുമാനം പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല

എസ് സി പരീക്ഷകളും മാറ്റി വച്ചു

എസ് എൽ

കോവിഡ് പ്രതിരോധ നടപടികൾ ഊർജ്ജിതമാക്കും കേരളം കർഫ്യൂ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ നിയന്ത്രണ നടപടികളുടെ ഭാഗമായി നാളെ മുതൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തും ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം

പൊതു ഗതാഗതത്തിന് നിയന്ത്രണമുണ്ടാകില്ല സാധ്യമായ സ്ഥലങ്ങളിൽ വർക്ക് ഫ്രം ഹോം നടപ്പാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്

ഞായറാഴ്ചകളിൽ ആൾക്കൂട്ടങ്ങളും കട കമ്പോളങ്ങൾ തുറക്കുന്നതിനും നിയന്ത്രണമുണ്ടാവും

വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു നിന്നും പ്രസ്ത്യ്ഥാനത്ത് എത്തുന്നവർ നിർബന്ധമായും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ആർ

സി

പരിശോധന നടത്താത്തവർ വീടുകളിൽ രണ്ടാഴ്ച നിരീക്ഷണത്തിൽ കഴിയണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു വയനാട് നിയന്ത്രണം വയനാട് ജില്ലയിലെ അന്തർ സംസ്ഥാന അതിർത്തികളിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവായി

കോഴിക്കോട് എറണാകുളം മലപ്പുറം തൃശൂർ കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ

ഇതുവരെ ഒന്നേകാൽ കോടിയിലധികം പേർ രോഗമുക്തരായി

നവ്ജ്യോത് ഖോസ കോവിഡ് ബി സി വിഭാഗങ്ങളിൽപ്പെട്ട രോഗികൾക്ക് ആശുപത്രികളിൽ മുൻഗണന നൽകും

ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ ലഭ്യമായിട്ടുള്ള സാധാരണ കിടക്കൾ വെൻറിലേറ്റർ ഓക്സിജൻ ഐ

അടിയന്തിര ചികിത്സയെ ബാധിക്കാതെ ആയിരിക്കും മേൽ ് നിയന്ത്രണം

രാജ്യത്തെ പ്രമുഖ ഡോക്ടർമാരുമായും പ്രധാനമന്ത്രി ഇന്ന് ആശയവിനിമയം നടത്തി ഔഷധ നിർമ്മാണ കമ്പനി മേധാവികളുമായും ശ്രീ

കോവിഡ് സ്ഥിതിയും വാക്സിനേഷന്റെ പുരോഗതിയും ശനിയാഴ്ച പ്രധാനമന്ത്രി അവലോകനം ചെയ്തിരുന്നു കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗത്തെ ചെറുക്കാൻ ശക്തമായ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു

പൂരം ചടങ്ങുകൾ മാത്രമായി നടത്തും കോവിഡ് കോർകമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ്

എസ്

സി പ്ലസ് ടു പരീക്ഷാ കേന്ദ്രങ്ങളിൽ എല്ലാ മുൻകരുതലുകളും കൈക്കൊണ്ടിട്ടുണ്ടെന്ന് പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു

ഓരോ പരീക്ഷ കേന്ദ്രത്തിലും ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും പൂർണ്ണ സാന്നിധ്യവും സഹകരണവും ലഭ്യമാക്കുമെന്നും ഡയറക്ടർ അറിയിച്ചു

അഭിമുഖവും സർട്ടിഫിക്കറ്റ് പരിശോധനയും മാറ്റിവെയ് ക്കും

ശൈലജ എ

മൊയ്തീൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം തദ്ദേക സ്ഥാപനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടേയും വ്യാപാരി വ്യവസായി സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്

പരിശോധന സർട്ടിഫിക്കറ്റോ പാസ് ലഭ്യമാകുന്നതിന്റെ നൽകണം

ജെ

സംസ്ഥാന പ്രസിഡൻറ് കെ

ഡി എഫിനും എൽ

എഫിനും കേവല ഭൂരിപക്ഷം കിട്ടില്ലെന്ന് അദ്ദേഹം കണ്ണൂർ മാലൂരിൽ വാർത്താ ലേഖകരോട് പറഞ്ഞു

പൂരം ചടങ്ങുകൾക്ക് വിഘ്നം വരരുതെന്നും ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു

ഇതിനെ തുടർന്ന് ശസ്ത്രക്രിയകളുടെയും സന്ദർശകരുടെയും എണ്ണം കുറയ്ക്കും

രാവിലെ നിയമസഭാ സെക്രട്ടറിക്കാണ് ഇരുവരും പത്രിക സമർപ്പിച്ചത്